കാർഡ് ഉടമകൾക്ക് മറ്റൊരു താലൂക്കിലേയ്ക്ക് റേഷൻ കാർഡ് മാറ്റുന്നതിനും തെറ്റുകൾ തിരുത്തുന്നതിനും പുതിയ അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നതിനും അപേക്ഷ സമർപ്പിക്കാം

സിവിൽ സപ്സൈസിന്റെ വൈബ്സൈറ്റിൽ നിന്നും പ്രിന്റ് എടുക്കുകയോ താലൂക്ക് സപ്ലൈ ഓഫീസ് പഞ്ചായത്ത് വില്ലേജ് ഓഫീസുകളിൽ ലഭ്യമാക്കിയിട്ടുള്ള മാതൃകാ ഫോറത്തിന്റെ പകർപ്പുകൾ പൂരിപ്പിച്ച് നൽകുകയോ വേണം

ശനിയാഴ്ചയാണ് ആദ്യ അലോട്മെന്റ് അടുത്ത മാസം ആറ് മുതൽ പന്ത്രണ്ട് വരെ കോളേജുകളിൽ പ്രവേശനം നേടാം ആർകിടെക്ചർ ഫാർമസി അനുബന്ധ കോഴ്സുകൾ എന്നിവയിലേക്കും പ്രവേശന നടപടികൾ ഇതോടൊപ്പം നടക്കും